നാല് റിട്ട് ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാറ്റിവച്ചു

ഇന്ന് തുടക്കം

ഹരികുമാർ കർണാടകയിൽ ഒളിവിലായിരുന്നു എന്നാണ് റിപ്പോർട്ട് കീഴടങ്ങാനായാണ് ഇന്നലെ ഇയാൾ കേരളത്തിലെത്തിയതെന്നാണ് സൂചന സനൽ കുമാറിനെ കാറിന് മുന്നിൽ തള്ളിയിട്ട് കൊലചെയ്തത് മനപ്പൂർവ്വമെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് കോടതിയിൽ സമർപ്പിക്കാനിരിക്കേയാണ് ഹരികുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വഴിയിലൂടെ വാഹ്യസ്കൃപരുന്നത് കണ്ടാണ് സനലിനെ തള്ളിയിട്ട് ഹരികുമാർ കൊലപ്പെടുത്തിയതെന്നും ഉക്രെംബ്രാഞ്ച് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്

സമരം തുടങ്ങി അൽപസമയത്തിനുള്ളിലാണ് ഡിവൈഎസ്പി ജീവനൊടുക്കിയ വാർത്ത എത്തിയത് പിന്നാലെ ദൈവത്തിന്റെ വിധി നടപ്പായെന്ന് മാധ്യമങ്ങൾക്കു മുന്നിൽ വിജി കണ്ണീരോടെ പ്രതികരിച്ചു പിന്നീട് ഉപവാസ സമരം അവസാനിപ്പിച്ച് വിജി മടങ്ങി

ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് തീരുമാനം

ഈ ഹർജികളെല്ലാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനിരിക്കുകയാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗ്ണിച്ചു ശേഷം റിട്ട് ഹർജികൾ പരിശോധിക്കാമെന്നാണ് സുപ്രീംകോടതി അറിയിച്ചിരിക്കുന്നത്

ശ്രീധരൻ പിള്ളയ്ക്കെതിരായ കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ അറിയിച്ചു വിവാദ പ്രസംഗത്തിന്റെ പേരിലുള്ള പൊലീസ് കേസ് റദ്ദാക്കണമെന്ന ശ്രീധരൻപിള്ളയുടെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചത്

രഥയാത്രയിലൂടെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാനാണ് ശ്രീധരൻ പിള്ള ശ്രമിക്കുന്നതെന്നും ഗവൺമെന്റ് കോടതിയെ ബോധിപ്പിച്ചു

ഉദ്ഘാടനം സംഘപരിവാറിന്റെയും മത നിരപേക്ഷത തുറന്നുകാട്ടുകയാണ് ്രലക്ഷ്യമെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന കെപിസീസി പ്രചാരണ വിഭാഗം ചെയർമാൻ കെ മുരളീധരൻ എം എൽ എ പറഞ്ഞു

വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു വിശദാംശങ്ങളുമായി സോഫിയ

ആഡ്രാപ്രദേശ് ബംഗാൾ തമിഴ്നാട് സംസ്ഥാനങ്ങളിലൂട്ടെയ്ാണ് ചുഴലിക്കാറ്റ് കടന്നുപോവുക എന്നാൽ വ്യാഴ്ം വെള്ളി ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപക മഴ ലഭിക്കും ഈ ദിവസങ്ങളിൽ പാലക്കാട് ഇടുക്കി വയനാട് മലപ്പുറം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം ന്തർകിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ചെന്നൈ നാഗ്പട്ടണം ഗൂഡല്ലൂർ ചെങ്കൽപ്പെട്ട് കാരയ്ക്കൽ പുതുച്ചേരി എന്നിവിടങ്ങളിലൂടെ ചുഴലി കടന്നുപോകും ആന്ധ്രാപ്രദേശിൽ കൃഷ്ണ ഗുണ്ടൂർ പ്രകാശം നെല്ലൂർ ജില്ലകളെ ബാധിക്കും ഇവിടങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് കടലിൽ തിരമാലകൾ മൂന്നര മുതൽ അഞ്ചര മീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് അറിയിപ്പുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

അബ്രുദാബി റിയാദ് ദോഹ എന്നിവിടങ്ങളിലേക്കാണ് കണ്ണൂരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവ്വീസ് ്ന്ട്യത്തുന്നത് അതിനിടെ ഇന്റിഗോ എക്സ്പ്രസ് ഗോ എയ്ർലൈൻസ് എന്നീ കമ്പനികളും കണ്ണൂരിൽ നിന്നും സർവ്വീസ് നടത്താൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട് ടടടടടടടടടട യാക്കോബായ പതിനൊന്നു ദിവസം നീണ്ട തർക്കത്തിനൊടുവിൽ യാക്കോബായ വിഭാഗം ഉന്നയിച്ച ആവശ്യം ജില്ലാ ഭരണകൂടം അംഗീകരിച്ചതിനെ തുടർന്ന് ആലപ്പുഴ കട്ടച്ചിറയിൽ യാക്കോബായ വൈദികർ പള്ളിയിൽ കയറി സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി കട്ടച്ചിറ പള്ളിക്കലേത്ത് വർഗീസ് മാത്യുവിന്റെ സംസ്കാര ശുശ്രൂഷയാണ് ഇന്ന് രാവിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന മേരീസ് കട്ടച്ചിറ സെന്റ് പള്ളിയിൽ നടന്നത്

ഇന്ത്യയുടെ പി

സിന്ധു ആദ്യ മൽസരത്തിൽ തായ്ലന്റിന്റെ നീച്ചൌൺ ജിൻഡാപോളിനെ നേരിടും സൈന നെഹ്വാൾ ആദ്യ റൌണ്ടിൽ ജപ്പാന്റെ രണ്ടാം സീഡ് താരം അക്കാനെ യ്മാഗുച്ചിയെ നേരിടും പുരുഷ വിഭാഗത്തിൽ എച്ച്

രാമായണത്തിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് യാത്ര

ആർ സി ടി സി ടൂറിസം എക്സിക്യൂട്ടീവ് പ്രജിത്ത് എം

മുക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഡ്രോക്യുമെന്ററിയുടെ സംവിധാനം പി ആർ ഡി ഉദ്യോഗ്സ്ഥനും ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകനുമായ വാൾട്ടർ ഡിക്രൂസാണ് നിർവ്വഹിച്ചിരിക്കുന്നത്